പ്രധാനമന്ത്രി നരേന്ദ്ര മോദി രാവിലെ ഗാന്ധിജിയുടെ സമാധിസ്ഥലമായ രാജ്ഘട്ടിൽ പുഷ്പാർച്ചന നടത്തും മഹാത്മാ ഗാന്ധി അന്താരാഷ്ട്ര ശുചിത്വ കൺവെൻഷനിലും പ്രധാനമന്ത്രി പങ്കെടുക്കും

ലോകം നേരിടുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം ഗാന്ധി ദർശനങ്ങളിലുണ്ട്

ലോകം അന്താരാഷ്ട്ര അഹിംസാ ദിനമായാണ് ഇന്നത്തെ ദിവസം ആചരിക്കുന്നത്

വാരാഘോഷത്തിന്റെ സംസ്ഥാന തല ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ തിരുവനന്തപുരത്ത് നിർവ ഹിക്കും കോൺഗ്രസ് ഉൾപ്പെടെ സംഘടനകൾ വിപുലമായ പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട് രദേഷ്ടെടു ഗാന്ധിജയന്തി വാരാചരണത്തിന്റെ കോഴിക്കോട് ജില്ലാതല പരിപാടി മന്ത്രി ടി പി രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും എരഞ്ഞിപ്പാലം നായനാർ ബാലികാസദനത്തിൽ നടക്കുന്ന ചടങ്ങിൽ മന്ത്രി എ കെ ശശീന്ദ്രൻ പ്രകൃതി സംരക്ഷണ പ്രവർത്തനങ്ങളും ഉദ്ഘാടനം ചെയ്യും പ്രളയാനന്തര പുനർ നിർമ്മാണം പ്രകൃതി സംരക്ഷണം എന്ന ആശയത്തിലൂന്നിയാണ് ഇത്തവ ണത്തെ വാരാഘോഷം മഹാത്മാഗാന്ധിയുടെ ചിതാഭസ്മം സൂക്ഷിക്കുന്ന ബാലികാസദനം അങ്കണത്തിൽ വൃക്ഷത്തൈകൾ നട്ടുകൊണ്ടായിരിക്കും ജില്ലാതല പരിപാടികളുടെ തുടക്കം

പി ജയരാജൻ ഗാന്ധിജയന്തി വാരാഘോഷവും സന്നദ്ധസേനാ രൂപീകരണവും ഉദ്ഘാടനം ചെയ്യും രാവിലെ എക്സൈസ് വകുപ്പിന്റെ നേതൃത്വത്തിൽ നഗരത്തിൽ ലഹരിവി രുദ്ധ മനുഷ്യചങ്ങലയും സംഘടിപ്പിക്കും

ന്യൂഡൽഹിയിൽ മഹാ ത്മാഗാന്ധി അന്താരാഷ്ട്ര ശുചിത്വ കൺവെൻഷനിൽ സംസാരിക്കുകയാ യിരുന്നു അദ്ദേഹം

പുതിയ ചീഫ് ജസ്റ്റിസായി ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയി നാളെ ചുമതലയേൽക്കും ലോകത്തെ ഏറ്റവും ശക്തമായ നിയമവ്യവസ്ഥയാണ് ഇന്ത്യയിലേതെന്ന് ഇന്നലെ സുപ്രീംകോടതിയിൽ സംഘടിപ്പിച്ച യാത്രയയപ്പ് ചടങ്ങിൽ ദീപ ക്മിശ്ര പറഞ്ഞു എണ്ണമറ്റ കേസുകളാണ് ഇന്ത്യൻ ജുഡീഷ്യറി കൈകാര്യം ചെയ്തുവരുന്നത്

ജഡ്ജിയായിരുന്ന കാലത്ത് ഒരിക്കൽപോലും തുല്യപരിഗണനയുടെ മാർഗ്ഗ ത്തിൽ നിന്ന് മാറിയിട്ടില്ലെന്ന് അദ്ദേഹം പറഞ്ഞു

അക്രമത്തിന്റെയും പ്രതിഷേധ ത്തിന്റെയും മാർഗ്ഗത്തിലൂടെ ഉണ്ടാകുന്ന ആൾക്കൂട്ട അതിക്രമങ്ങളെ ഒരി ക്കലും നൃായീകരിക്കാനാവില്ലെന്നും ചീഫ് ജസ്റ്റിസ് ദ്രീപക് മിശ്ര അധ്യക്ഷ നായ മൂന്നംഗ ബെഞ്ച് വിധിച്ചു കൊടുങ്ങല്ലൂർ ഫിലിം സൊസൈറ്റി പത്മാ വത് സിനിമക്കെതിരായ അതിക്രമങ്ങൾ ഉന്നയിച്ച് സമർപ്പിച്ച ഹർജിയിലാണ് സുപ്രധാന വിധി പൊതുസ്വത്തിനും സ്വകാര്യ സ്വത്തിനും ആൾക്കൂട്ട അതി ക്രമങ്ങൾ വഴി ഉണ്ടാകുന്ന നാശനഷ്ടങ്ങൾക്ക് നേരിട്ടോ അല്ലാതെയോ അക്ര മത്തിന് ആഹ്വാനം ചെയ്യുന്നവരിൽ നിന്ന് നഷ്ടപരിഹാരം ഈടാക്കണ മെന്നും ഡിവിഷൻ ബെഞ്ച് ആവശ്യപ്പെട്ടു ഇത്തരം സംഭവങ്ങൾ നിയന്ത്രി ക്കാൻ സംസ്ഥാനങ്ങൾ ഹെൽപ്ലൈൻ നമ്പറുകൾ ഏർപ്പെടുത്തണം

രുവെട്ടിടു വാഹനാപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന പ്രശസ്ത വയ ലിനിസ്റ്റും സംഗീത സംവിധായകനുമായ ബാലഭാസ്കർ അന്തരിച്ചു ഇന്ന് പുലർച്ചെ ഒരു മണിയോടെ തിരുവനന്തപുരത്തെ അനന്തപുരി ആശുപത്രി യിലായിരുന്നു അദ്ദേഹത്തിന്റെ അന്ത്യം ശസ്ത്രക്രിയകൾക്ക് ശേഷം ചികി ത്സയിലിരിക്കെ ഉണ്ടായ ഹൃദയാഘാതത്തെ തുടർന്നായിരുന്നു നാൽപതു കാരനായ ബാലഭാസ്കറിന്റെ മരണം കഴിഞ്ഞ ചൊവ്വാഴ്ച പുലർച്ചെ പള്ളി പ്പുറം സി ആർ

എഫ് ക്യാമ്പിന് സമീപമുണ്ടായ വാഹനാപകടത്തിലാണ് ബാലഭാസ്കറിനും കുടുംബത്തിനും പരിക്കേറ്റത്

ഭാര്യ ലക്ഷ്മിയും വാഹനം ഓടിച്ചിരുന്ന സുഹൃത്ത് അർജ്ജുനും ചികിത്സ യിലാണ് നിയന്ത്രണം നഷ്ടപ്പെട്ട കാർ റോഡരികിലെ മരത്തിലിടിച്ചായിരുന്നു അപകടം രുട്ട്ട്ട്ട്ട്ട്ട്ട സുപ്രീംകോടതി ഉത്തരവിനെ തുടർന്ന് ശബരിമലയിലെ സ്ത്രീ പ്രവേ ശനത്തിൽ ഒരുക്കുന്ന സൌകരൃങ്ങൾ വിശദീകരിക്കണമെന്ന് ഹൈക്കോടതി സംസ്ഥാന ഗവൺമെന്റിനോട് ആവശ്യപ്പെട്ടു ശബരിമല സീസണ് മുന്നോ ടിയായ ഒരുക്കങ്ങളെക്കുറിച്ച് നൽകിയ റിപ്പോർട്ട് പരിഗണിക്കുമ്പോഴാണ് പുതിയ സാഹചര്യത്തിലെ ഒരുക്കങ്ങൾ വ്യക്തമാക്കാനാവശ്യപ്പെട്ടത് ഇതേ പ്പറ്റി ഒരാഴ്ചക്കകം റിപ്പോർട്ട് നൽകാമെന്ന് ഗവൺമെന്റ് ഹൈക്കോടതിയെ അറിയിച്ചു ദർശ്ശക്ക ശബരിമല സ്ത്രീ പ്രവേശനത്തിൽ പന്തളം വലിയ കോയിക്കൽ കൊട്ടാ രത്തിന്റെ അഭിപ്രായങ്ങൾ ഗവൺമെന്റിനെ അറിയിക്കുമെന്ന് തിരുവിതാം കൂർ ദേവസം ബോർഡ് പ്രസിഡന്റ് എ പത്മകുമാർ പറഞ്ഞു പന്തളം കൊട്ടാരം നിർവാഹക സംഘം ഭാർവാഹികളുമായി ചർച്ച നടത്തിയ ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു പത്മകുമാർ രംഗമ്പ്പെടു ശബരിമലയിൽ സ്ത്രീകൾക്ക് പ്രവേശനാനുമതി നൽകിയ സുപ്രീംകോ ടതി വിധിക്കെതിരെ പന്തളം രാജകുടുംബം നൽകുന്ന കേസിൽ കക്ഷിചേ രുമെന്ന് കേരള മുസ്സിം ജമാഅത്ത് കൌൺസിൽ സംസ്ഥാന പ്രസിഡന്റ് എ പൂക്കുഞ്ഞ് ആലപ്പുഴയിൽ അറിയിച്ചു സഹോദര സമുദായത്തോട് ഐക്യ ദാർഢ്യം എന്ന നിലയിലാണ് കേസിൽ കക്ഷിചേരുന്നതെന്ന് പൂക്കുഞ്ഞ് പറഞ്ഞു

എസ് സി ക്ക് വിട്ടശേഷം കാലി ക്കറ്റ് സർവകലാശാല നടത്തിയ അസിസ്റ്റന്റ് നിയമനം റദ്ദാക്കണമെന്ന് ഹൈക്കോടതി ഉത്തരവിട്ടു

എസ് സിക്ക് വിട്ടത് ഇതിനുശേഷമുണ്ടായ ഒഴിവുകളിലും നേരത്തെ തയ്യാറാക്കിയ റാങ്ക് പട്ടികയിൽ നിന്ന് നിയമനം നടത്തിയെന്ന പരാതിയിലാണ് കോടതി ഉത്ത രവ്

മുഖൃമന്ത്രി പിണറായി വിജയന്റെ സാമ്പത്തിക ഉപദേഷ്ടാവാണ് ഗീത ഗോപിനാഥ് ദർവ്വട്ടെഴ കേന്ദ്ര ഗവൺമെന്റ് പത്തനംതിട്ട കോന്നിയിൽ അനുവദിച്ച കേന്ദ്രീയ വിദ്യാലയം നാളെ ടൂറിസം സഹമന്ത്രി അൽഫോൻസ് കണ്ണന്താനം ഉദ്ഘാ ടനം ചെയ്യും പത്തനംതിട്ട ജില്ലയിലെ മൂന്നാമത്തെ കേന്ദ്രീയ വിദ്യാലയമാ ണിത് രദേഷ്ടെടു ആയിരം കോടി രൂപ മുടക്കി കേരളത്തിലെ പൊതുവിദ്യാലയങ്ങളുടെ അക്കാദമിക് സൌകര്യങ്ങൾ വിപുലപ്പെടുത്താൻ മാസ്റ്റർപ്താൻ തയ്യാറാക്കു മെന്ന് നിയമസഭ സ്പീക്കർ പി ശ്രീരാമകൃഷ്ണൻ പറഞ്ഞു അടൂരിൽ ഉപ ജില്ലാ വിദ്യാഭ്യാസ ഓഫീസ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു സ്പീക്കർ

സി ഗോവ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് മത്സരം സമനിലയിൽ പിരിഞ്ഞു ഗോഹട്ടിയിലെ ആവേശം നിറഞ്ഞ മത്സരത്തിൽ ഇരു ടീമുകളും രണ്ട് ഗോളുകൾ വീതമടിച്ചാണ് സമ നില പാലിച്ചത് ഇന്ന് മുംബൈയിൽ മുംബൈ സിറ്റി എഫ് സിയും ജാംഷ ഡ്പൂരും ഏറ്റുമുട്ടും

ആൺകുട്ടികളുടെ വിഭാഗത്തിൽ കർണാടകയെയും പെൺകുട്ടി കളുടെ വിഭാഗത്തിൽ മഹാരാഷ്ട്രയെയുമാണ് കേരളം തോൽപ്പിച്ചത്

സുപ്രീംകോടതി വിധിയുടെയും നിയമ കമ്മീഷൻ റിപ്പോർട്ടിന്റെയും അടിസ്ഥാനത്തിലാണ് ബി സി

കെ ബാലൻ ഇന്ന് രാവിലെ കണ്ണൂരിൽ നിർവഹിക്കും

രദ്ദേഷ്ടങ പ്രളയത്തെ തുടർന്ന് കാർഷിക മേഖലയിലുണ്ടായ തകർച്ച നേരിടാൻ കൃഷിവകുപ്പ് ആവിഷ്കരിച്ച സന്നദ്ധ സേവന പരിപാടിയുടെ എറണാകുളം ജില്ലാതല ഉദ്ഘാടനം ഇന്ന് നടക്കും മന്ത്രി വി എസ് സുനിൽകുമാർ പുത്തൻവേലിക്കരയിൽ ഉദ്ഘാടനം ചെയ്യും രദ്ദേഷ്ടങ കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ ഇൻസ്ട്രുമെന്റ് ലാന്റിംഗ് സംവിധാനത്തിന്റെ പരിശോധനക്കായി ഇന്ന് പുരീക്ഷണ പറക്കൽ നടത്തും

സംസ്ഥാനത്ത് നൂറിലേറെപ്പേർക്കായി മഹാരാജ അഞ്ഞൂറ് കോടിയോളം രൂപ പലിശക്ക് നൽകിയതായാണ് റിപ്പോർട്ട്

പതിനായിരത്തിലേറെപേർ കഴിഞ്ഞ ഒരാഴ്ച യിൽ കൊളുക്കുമലയിലെത്തി

ജെ പി എൻ ആർ ഐ സെൽ നിർദ്ധന കുടുംബങ്ങൾക്ക് വീട് വെച്ച് നൽകുന്ന പദ്ധതിയിൽ കണ്ണൂരിൽ നിർമ്മിച്ച വീടിന്റെ താക്കോൽദാനം ഇന്ന് രാവിലെ ഇരിക്കൂറിൽ ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് പി എസ് ശ്രീധ രൻപിള്ള താക്കോൽ കൈമാറും